കൂട്ടനാട്ടിൽ വെള്ളപ്പൊക്ക നിലയിൽ ആശ്ചാസം ആളു കൾ തിരിച്ചെത്തിത്തുടങ്ങി

ഹരീഷ് നോവൽ പിൻവലിച്ചത് തെറ്റായിപ്പോയെന്ന് മന്ത്രി ജി സുധാകരൻ

സ്കൂൾ വിദ്യാർത്ഥികളിലുൾപ്പെടെ വളരുന്ന മയക്കുമരുന്ന് ഉപയോഗം നിയന്ത്രിക്കാൻ ദേശീയ കർമ്മ പരിപാടി തയ്യാറാ ക്കുന്നതിന് സുപ്രീംകോടതി ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന് നിർദ്ദേശം നൽകി സെപ്തംബർ ഏഴിനകം എയിംസിലെ ഉന്നതാധികാര സമിതി ഇതു സംബ ന്ധിച്ച റിപ്പോർട്ട് സുപ്രീംകോടതിയിൽ സമർപ്പിക്കണം ദേശീയ പ്രാധാന്യമേറിയ ഈ വിഷയത്തിൽ ഗ്രവൺമെന്റിനും എ

വിഷയത്തിന്റെ ഗൌരവം മനസ്സിലാക്കി എയിംസ് അധികൃതർ റിപ്പോർട്ട് തയ്യാറാക്കണമെന്നും കോടതി പറഞ്ഞു

ഇത് നടപ്പാക്കിയില്ലെന്ന് കാണിച്ച് സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീംകോടതി ഉത്തരവ് ജമ്മു കശ്മീരിലെ കുൽഗാമിൽ സൈന്യവുമായുണ്ടായ ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരർ കൊല്ലപ്പെട്ടു

പ്രദേശത്ത് ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന വിവരത്തെത്തു ടർന്ന് സൈന്യവും സി

എഫും സംയുക്തമായി നട ത്തിയ തെരച്ചിലിനിടയിലാണ് ഏറ്റുമുട്ടലുണ്ടായതെന്ന് സംസ്ഥാന പൊലീസ് മേധാവി എസ്

കൊല്ലപ്പെട്ട ഭീകരരിൽനിന്ന് ആയുധങ്ങൾ കണ്ടെത്തിയതായും അദ്ദേഹം ശ്രീനഗറിൽ പറഞ്ഞു കത്വയിൽ ട്രെയിനിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അഹമ്മ ദ്ഷായെ വെള്ളിയാഴ്ച വീട്ടിൽനിന്നാണ് തീവ്രവാദികൾ തട്ടി ക്കൊണ്ടുപോയത് ഇന്നലെ ക്രൂരമർദ്ദന്തിനിടയായി കൊല്ല പ്പെട്ട അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു കത്വവ ജില്ലയിൽ അന്താരാഷ്ട്ര അതിർത്തിയിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം ബി എസ് എഫ് തകർത്തു ഹിര നഗറിലെ ബൊബോയിയ പ്രദേശത്ത് ഭീകകരുടെ സംശയകരമായ നീക്കം ശ്രദ്ധയിൽപ്പെട്ട ബി

എഫ് ജവാന്മാർ വെടിവെക്കു കയായിരുന്നു പാക്കിസ്ഥാൻകാരനായ ഭീകരൻ വെടിവെ യ്പിൽ കൊല്ലപ്പെട്ടതായി ബി

എഫ് ഐ ജി റാം അവ താർ ജമ്മുവിൽ അറിയിച്ചു കുട്ടനാട്ടിൽ മഴയുടെ ശക്തി കുറഞ്ഞതോടെ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങി വീടുവിട്ട് സുരക്ഷിത സ്ഥലങ്ങളിൽ അഭയം തേടിയവർ തിരിച്ചെത്തുകയാണ് വലിയൊരു ദുരന്തത്തിന്റെ ഞെട്ടലിൽനിന്ന് ജനം ഇനിയും മോചിതരായിട്ടില്ല

ആലപ്പുഴ ജില്ലയിലെ ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾ വില യിരുത്താൻ ഉന്നതതലയോഗം കലക്ടറേറ്റിൽ ആരംഭിച്ചു

ഒരു ലക്ഷത്തോളം വീടുകളാണ് കാലവർഷത്തിൽ ജില്ലയിൽ നശിച്ചത് അതേസമയം വെള്ളപ്പൊക്ക് ദുരിതത്തിൽനിന്ന് രക്ഷി ക്കാൻ കുട്ടനാട്ടിലേക്ക് ഭക്ഷണമായും വസ്ത്രമായും മരു ന്നായും സഹായങ്ങൾ എത്തുന്നുണ്ടെന്ന് ഞങ്ങളുടെ പ്രതി നിധി ആർ രവികുമാർ ്റിപ്പോർട്ട് ചെയ്തു ആന്ത്രോത്ത് ദ്വീപിൽനിന്ന് മത്സ്യബന്ധനത്തിന് പോയി കാണാതായ നാല് തൊഴിലാളികൾക്കായി തെരച്ചിൽ തുടരു ന്നു തീരദേശ സംരക്ഷണ സേനയുടെ പൈലറ്റില്ലാ വിമാനം രാവിലെ തെരച്ചിൽ ആരംഭിച്ചു ഇന്നലെ രാവിലെയാണ് ചെറിയ തോണിയിൽ തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോയത്

ലക്ഷ ദ്വീപ് പ്രദേശത്തും മധ്യ തെക്കുപടിഞ്ഞാറൻ വടക്കൻ അറബിക്കടൽ മേഖലയിലും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട് കാലവർഷക്കെടുതി നേരിടാൻ ഗവൺമെന്റ് യുദ്ധകാലാ ടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണമെന്ന് എ ഐ സിസി ജനറൽ സെക്രട്ടറി കെ

ഏറ്റവുമ ധികം ദുരിതമുണ്ടായ കുട്ടനാട്ടിൽ ദുരിതാശ്ചാസ പ്രവർത്തന ങ്ങൾ ഏകോപിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ ഒരു വാർത്താ ചാനലിനോട് പറഞ്ഞു സംഘ്പരിവാർ ഭീഷണി ഭയന്ന് എസ് ഹരീഷ് നോവൽ പിൻവലിച്ചത് തെറ്റായിപ്പോയെന്ന് മന്ത്രി ജി

ഹരീഷിനും കുടുംബത്തിനും നേരെ ഭീഷണി മുഴക്കിയവരെ ഗവൺമെന്റ് ശക്തമായി നേരിടുമെന്നും മന്ത്രി മലപ്പുറത്ത് അറിയിച്ചു അതേസമയം നോവലിസ്റ്റ് എസ്

ഇന്ത്യയിലെ അടിച്ചമർത്തപ്പെട്ടവർക്കായി പോരാടാൻ പാർട്ടി പ്രവർത്തകരോട് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ആഹാനം ചെയ്തു പുതിയ കോൺഗ്രസ് പ്രവർത്തക സമിതി മൂന്ന് തലമുറകളെ ബന്ധിപ്പിക്കുന്നതാണെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ ആരംഭിച്ച സി ഡബ്ല്യൂ സി യോഗത്തിൽ പറ ഞ്ഞു

കെ ആന്റണി ഉമ്മൻചാണ്ടി കെ സി വേണുഗോ പാൽ എന്നിവരും പ്രത്യേക ക്ഷണിതാവായി പി

സി പ്രസിഡന്റുമാരും പാർട്ടി നിയമസഭാകക്ഷിനേ താക്കളും കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെ ടുക്കുന്നുണ്ട് വൈകിട്ട് ഇവരുമായി രാഹുൽ ഗാന്ധി പ്രത്യേകം ചർച്ച നടത്തും കോട്ടയം കുറവിലങ്ങാട് മഠത്തിന് പൊലീസ് സുരക്ഷ ഏർപ്പെടുത്തി ജലന്ധർ ബിഷപ്പിനെതിരെ പീഡന പരാതി നൽകിയ കന്യാസ്ത്രീക്ക് സുരക്ഷാ ഭീഷണി വർദ്ധിച്ച സാഹ ചര്യത്തിലാണ് നടപടി ചെന്നൈ തരമണിയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്ന് വീണ് ഒരാൾ മരിച്ചു

അഞ്ചുപേരുടെ നില ഗുരുതരമാണ് അന്യസംസ്ഥാന തൊഴി ലാളികളായ ഇരുപതോളം പേരെ രക്ഷപ്പെടുത്തി അഞ്ച് ദിവസങ്ങളിലായി തുഷാരഗിരിയിൽ നടക്കുന്ന ആറാ മത് റിവർ ഫെസ്റ്റിവലും ലോക കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പും ഇന്ന് സമാപിക്കും കയാക്കിംഗ് മേളയുടെ സമാപന സമ്മേ ളനം പുല്ലൂരാംപാറയിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും പുരസ്കാരങ്ങളും മന്ത്രി സമ്മാനിക്കും കർഷകരിൽനിന്ന് സഹകരണ സംഘങ്ങൾ വഴി സംഭരി ക്കുന്ന നെല്ല് അരിയാക്കി പൊതു വിതരണ ശൃംഖലയിലൂടെ ലഭ്യമാക്കുന്ന സംവിധാനം സംസ്ഥാനത്ത് സ്ഥിരമായി നടപ്പാ ക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു പാലക്കാട് ജില്ലയിലെ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിക്കുന്നതുമായി ബന്ധപ്പെട്ട യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി

ബാലൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി

എൻഡോസൾഫാൻ ഇരകളോട് പ്രായശ്ചിത്തം ചെയ്യുന്ന തിന് എയിംസ് കാസർകോട് സ്ഥാപിക്കണ്മെന്ന് കൂടംകുളം ആണവനിലയ വിരുദ്ധ സമര സമിതി നേതാവ് എസ്

കേരളത്തിന് അനുവദിച്ച എയിംസ് കാസർകോട്ട് സ്ഥാപിക്കണമെന്നാവശ്യ പ്പെട്ട് എൻഡോ സൾഫാൻ പീഡിത ജനകീയ മുന്നണി കാസർകോട്ട് നടത്തിയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

എസ് ആർ

സി കണ്ണൂർ ഡിപ്പോയുടെ സമഗ്രവികസന ത്തിനായി നടപ്പാക്കുന്ന മാസ്റ്റർ പ്ലാനിന്റ പുരോഗതി മന്ത്രി രാമ ചന്ദ്രൻ കടന്നപ്പള്ളി വിലയിരുത്തി

കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യു ന്ന വേളയിൽ തന്നെ കണ്ണൂരിൽ നിന്ന് വിമനാത്താവളത്തിലേ ക്ക് പ്രത്യേക എ സി ബസ് സർവ്വീസ് ആരംഭിക്കുന്നതിന് നടപ ടികൾ സ്വീകരിക്കാൻ് മന്ത്രി നിർദ്ദേശം നൽകി

സി മിന്നൽ ബസ് തിരുനാവായയിൽ തട ഞ്ഞുനിർത്തി ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ സംഘത്തെ ക്കുറിച്ച് പൊലീസിന് സൂചന ലഭിച്ചു

പരിക്കേറ്റ ഡ്രൈവർ പാലോട് സ്വദേശി നജീം കുറ്റിപ്പുറത്ത് ആശുപത്രിയിൽ ചികിത്സയിലാണ് അക്രമം സംബന്ധിച്ച വീഡിയോ ദൃശ്യങ്ങൾ പൊലീസിന് ലഭിച്ചു വ്യാജമദ്യം തടയാൻ ഓണത്തിന് മുന്നോടിയായി പഞ്ചായ ത്ത് തലത്തിൽ വിവിധ വകുപ്പുകളുടെ സംയുക്ത റെയ്ഡു കൾ നടത്താൻ കണ്ണൂർ ജില്ലാതല ജനകീയ കമ്മിറ്റിയോഗം തീ രുമാനിച്ചു

മത്സ്യസമ്പത്ത് പുനരുജ്ജീവിപ്പിക്കുന്നതിനായി ഉൾനാടൻ പൊതുജലാശയങ്ങളിൽ ചെമ്മീൻ മത്സ്യവിത്ത് എന്നിവ നി ക്ഷേപം നടത്തുന്ന പദ്ധതിക്ക് കണ്ണൂർ ജില്ലയിലെ ഏഴോം ഗ്രാ മപഞ്ചായത്തിൽ തുടക്കമായി

ഏ ഴോം പഞ്ചായത്ത് പ്രസിഡന്റ് സി

സംസ്ഥാനത്തെ സർവ്വകലാശാലാ വൈസ് ചാൻസലർമാരുടെ യോഗം നാളെ കൊച്ചിയിൽ ചേരും ചാൻസലർ കൂടിയായ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം യോഗത്തിൽ അധ്യക്ഷനായി രിക്കും

മത്സ്യബന്ധന ബോട്ടുകളിൽ ഇന്ധനം നിറയ്ക്കാനുള്ള ഡീസൽബങ്ക് കണ്ണൂർ അഴീക്കലിൽ അടുത്ത മാസത്തോടെ പ്രവർത്തനം തുടങ്ങും അഴീക്കൽ ഹാർബറിന് സമീപം മത്സ്യ ഫെഡാണ് ബങ്ക് സ്ഥാപിക്കുന്നത്